ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് അഭിസംബോധന ചെയ്യും

സിബിഐ കോടതി ഇന്ന് വിധി പറയും

സ്ഥിരീകരിച്ചു

എസ്

നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പോസ്റ്റൽ സ്റ്റാമ്പും പുറത്തിറക്കും സർവകലാശാല ചാൻസലർ സയദ്ന മുഫദൽ സൈഫുദ്ദീനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിശാങ്കും ചടങ്ങിൽ സംബന്ധിക്കും അഞ്ച് ദശാബ്ദത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അലിഗഡ് മുസ്ലീം സർവകലാശാലയിലെ ചടങ്ങിൽ പക്കെട്ടുക്കുന്നത്

ശതാബ്ദി ആഘ്രോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദ്യി സ്വീകരിച്ചതിൽ വലിയ ആഹ്ലാദമുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ താരിഫ് മൻസൂറും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമ ശാസ്ത്ര വകുപ്പ് മന്ത്രി ഹർഷവർദ്ധനും പങ്കെടുക്കും സമൂഹത്തിൽ ശാസ്ത്രാവബോധം വളർത്താൻ ശാസ്ത്ര സാങ്കേതിക ഭൌമ മന്ത്രാലയവും വിജ്ഞാന ഭാരതിയും ചേർന്നാണ് ഈ ആശയം രൂപപ്പെടുത്തിയത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ശാസ്ത്രം സാങ്കേതികത എൻജിനീയ റിംഗ് ഗണിത ശാസ്ത്രം എന്നിവ എങ്ങനെ പ്രയോജനപ്പെടു ത്താമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ലക്ഷ്യമാണ്

ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിലുള്ള ്സ്മിതി് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യും ചരിത്രകാരുന്മാർ എഴുത്തുകാർ വിദഗ്ദ്ധർ നേതാജിയുടെ കുടുംബാംഗങ്ങൾ ആസാദി ഹിന്ദ് ഫൌജ് ഐ

എ യുമായി ബസ്ശ്ലപ്പെട്ട പ്രമുഖ വൃക്തികൾ തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാകുക നേതാജിയുടെ ധീരത വിഖ്യാതമാ ണെന്നും അദ്ദേഹത്തിന്റെ ജ്ന്മവാർഷികം ഗംഭീരമായി ആഘോഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവരാണ് കേസിലെ പ്രതികൾ

ശക്തവും വിശ്വാസത്തിലധിഷ്ഠിതവും പരിധിയില്ലാത്തതുമായ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് ഇന്തൃയിലെ റഷ്യൻ അംബാസിഡർ നിക്കോളേ കൂഡഷേവ് പറഞ്ഞു

ഐ പോപ്പൂലിർ ്യ്ഥണ്ട് പ്രവർത്തകരെ ദേശീയ അന്വേഷണ ഏജൻസി ആറസ്റ്റ് ചെയ്തു കോൺഗ്രസ് എം എൽ എ എ

അക്രമങ്ങൾക്ക് ആളെ കൂട്ടാൻ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു

കോവിഡ് വാക്സിൻ വിതർണം സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ക്കും സംശയങ്ങൾക്കും മുറുപടിയായാണ് ആരോഗൃമന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന മറ്റ് വിഭാഗങ്ങൾക്കുമാണ് പ്രഥമ പരിഗണന

വാക്സിൻ ലഭിക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു രജിസ്റ്റർ ചെയ്യുന്നവരിൽ അർഹരായവരെ ഫോണിൽ വിവരം അറിയിക്കും ലോകത്തു തന്നെ ഏറ്റവും ബൃഹത്തായ രോഗപ്രതിരോധ പരിപാടിയാണ് ഇന്തൃ ഏറ്റെടുക്കുന്നത്

വിവിധ ജനവിഭാഗങ്ങളിലേക്ക് സമയ ബന്ധിതമായും ഫലപ്രദമായും കോവിഡ് വാക്സിൻ എത്തിക്കാൻ വൃക്തമായ തയ്യാറെടുപ്പോടെ യാണ് സർക്കാർ നീങ്ങുന്നത്

വാക്സിൻ സുരക്ഷാ ഗുണനിലവാര്ർ പ്രുലർത്തുന്നതായി യൂറോപ്യൻ മെഡിസിൻസ് ഏജൻറ്റ്സി വിലയിരുത്തിയതിന് പിന്നാലെയാണ് വാക്സിൻ ജനുങ്ങൾക്ക് നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം

എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡിഷ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരു എഫ്

കെ ബഗാൻ ഏക പക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി

ഇന്ത്യൻ സൈനൃം ശക്തമായി തിരിച്ചടിച്ചതായി സൈനിക വക്താവ് അറിയിച്ചു